കാർഷികോത്പന്നങ്ങൾക്ക് മികച്ച വിലയും കർഷകർക്ക് ക്ഷേമവും ഉറപ്പു നല്കുന്ന പ്രധാനമന്ത്രി അന്നദാതാ സംരക്ഷണ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ മൂല്യ അംഗീകാരം

ഇന്ത്യൻ വ്യോമ്സേനയെ സുസജ്ജമാക്കുമെന്ന് ചീഫ് മാർഷൽ ബി

എം ആഷയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

എ ഗവൺമെന്റിന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു കാർഷികോത്പന്നങ്ങളുടെ വില കടാശ്വാസ ഇത് പദ്ധതികൾ വിളവെടുപ്പ് സംഭരണം തുടങ്ങിയ മേഖലകളിലെല്ലാം കർഷകർക്ക് നല്കുന്ന ആനുകൂല്യങ്ങൾ ഇനി ഈ പദ്ധതി പ്രകാരമായിരിക്കും നല്കുക മികച്ച വില ഉത്പന്നങ്ങൾക്ക് ഉറപ്പാക്കുന്നതിനോടൊപ്പം കർഷകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഈ പദ്ധതിയിൽ നിർദ്ദേശങ്ങളുണ്ട് എന്നതാണ് പ്രത്യേകത

മീ

ഇതോടെ ബ്രോഡ്ഗേജ് ലൈനുകളുടെ വൈദ്യുതീകരണം സമ്പൂർണ്ണമാകുമെന്ന് റെയിൽവേമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

ധർമ്മേന്ദ്രപ്രധാൻ അറിയിച്ചു

അടിസ്ഥാന സൌകര്യം സാങ്കേതികരംഗം മനുഷ്യവിഭവശേഷി എന്നിവയിലെ വികസനമാണ് പൊതുവിൽ പദ്ധതി ലക്ഷ്യമിടുന്നത്

ഇവർക്ക് വേണ്ടി ചരിത്രകാരിയായ റോമിലഥാപ്പർ ആണ് സുപ്രീംകോടതിയെ സമർപ്പിച്ചത്

അതുവരെ വീട്ടുതടങ്കൽ തുടരുമെന്നും കോടതി അറിയിച്ചു

ന്യൂഡൽഹിയിൽ ഒരു സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

ഇന്ത്യയുടെ ആയൽ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ചൈന അവരുടെ വ്യോമസേനയെ അടിക്കടി നവീകരിക്കുകയാണ് റഫേൽ എസ്

കഴിഞ്ഞ യുപിഎ ഗവൺമെന്റ് വേണ്ടത്ര പരിശോധനകളില്ലാതെയും ആവശ്യമായ സെക്യൂരിറ്റികൾ സ്വീകരിക്കാതെയും നല്കിയ വായ്പകളാണ് പിന്നീട് വിവാദത്തിലായത് രാജ്യത്തെ ബാങ്കിംഗ് നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കാനുള്ള നടപടികൾ വിജയകരമായി എൻഡിഎ ഗവൺമെന്റിന് നടപ്പാക്കാനായെന്നും കേന്ദ്രമന്ത്രി പിയൂഷ്ഗോയൽ പറഞ്ഞു നിഷ്ക്രിയ ആസ്തി പെരുകുന്നതായുള്ള കോൺഗ്രസിന്റെ പ്രചരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും മന്ത്രി പറഞ്ഞു

ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയേയും അത് ശുദ്ധീകരിച്ചതായും മന്ത്രി പറഞ്ഞു പെട്രോളിയം ഉത്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിലയനുസരിച്ചാണ് ഇന്ത്യയിലും വില കൂടിയിട്ടുള്ളത് ആഗോളതലത്തിലുള്ള ഈ കാരണങ്ങളെ ഗവൺമെന്റ് ഗൌരവത്തോടെ വീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലകൂടുതൽ മൂലം അപ്രതീക്ഷിതമായി ലഭിച്ച സാമ്പത്തിക ലാഭം ഉപേക്ഷിക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന നികുതി കുറച്ചാൽ പ്രെട്രോളിന്റെ വിപണി വില കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു

ചില രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് മറ്റു രാജ്യങ്ങളുടെ സംരക്ഷകരായി പ്രവർത്തിക്കുന്നത് ലോക പുരോഗതിക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് ചൈനീസ് വൈസ് പ്രിമിയർ ഹു ചുൻഹ്വാ പറഞ്ഞു

വിപണിയിൽ അനധികൃതമായി ഇടപെടുന്നത് അന്താരാഷ്ട്രവൃാപ്പാര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു

ലോകബാങ്കിന്റെയും ഏഷ്യൻ വികസന ബാങ്കിന്റെയും പ്രത്യേകസംഘങ്ങളാണ് കോഴിക്കോട് ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ സന്ദർശനം നടത്തിയത് ആലപ്പുഴയിൽ പ്രളയം കൂടുതൽ നാശം വിതച്ച കുട്ടനാട് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് സംഘം എത്തിയത് ഇവിടെ കൃഷി വിനോദസഞ്ചാരം മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ നേരിട്ട പ്രതിസന്ധി അവർ വിലയിരുത്തി

തുടർന്ന് ജില്ല കളക്ടറുമായി ചർച്ച നടത്തി മഴക്കെടുതിയിൽ തകർന്ന പന്നിയാർ ജലവൈദ്യുതപദ്ധതി ചെറുതോണി പുളിയൻമല തൊടുപുഴ തുടങ്ങിയ ഇടങ്ങളിൽ സംഘം നാളെ സന്ദർശനം നടത്തും ലോകബാങ്ക് എ ഡി

വിവിധ ജില്ല്കളിൽ നിന്നായി പിരിച്ചെടുത്ത തുകയുടെ ചെക്ക് ഇന്നലെ മുഖ്യമന്ത്രി യോഗി ആദിത്യ നാഥിന് കൈമാറി കേരളത്തിലെ ജനങ്ങളെ പിൻതുണയ്ക്കാൻ സാദ്ധ്യമായ എല്ലാ സഹായവും ഉത്തർപ്രദേശ് ഗവൺമെന്റ് ചെയ്യുമെന്ന് യോഗി ആദിത്യനാഥ് അറിയിച്ചു ചെക്ക് കേരള ഗവൺമെന്റിന് കൈമാറുമെന്നും അദ്ദേഷ്ഠം അറിയിച്ചു

സുതാര്യത ഉത്തരാവാദിത്വം എന്നീ മുദ്രാവാകൃങ്ങൾ മുന്നോട്ട് വച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എഎപി അഴിമതിയുടെ വലിയ ഗുണഭോക്താക്കളാണെന്നാണ് സംഭവം തെളിയിക്കുന്നതെന്നും ബിജെപി വക്താവ് ആരോപിച്ചു

ചില ഉപാധികൾക്ക് വിധേയമായി ആറ് മരുന്നു സംയുക്തങ്ങളുടെ നിർമ്മാണവും വിൽപനയും വിതരണവും നിയന്ത്രിക്കാനും മന്ത്രാലയം തീരുമാനിച്ചു

ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് വിജ്ഞാപനമിറക്കി ഇത് ഉടൻ പ്രാബല്യത്തിൽ വരും

തൃാഗിക്കും കൂട്ടുപ്രതികൾക്കും ഡൽഹി ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു

അഞ്ചു വർഷത്തിനു ശേഷമാണ് ഫുട്ബാളിൽ ഇന്ത്യിയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത്